ജ്ഞതാബലി ഇന്ന് വത്തിക്കാനിൽ കോഴിക്കോട് കൂടത്തായ് ദുരൂഹമരണകേസിൽ അന്വേഷണസംഘം ഇന്ന് കൂടുതൽ പേരുടെ മൊഴിയെടുക്കും മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ സൌരവ് ഗാംഗുലി ബി സി സി ഐ പ്രസിന്റാകും റാഞ്ചി ദേശീയ ഓപ്പൺ അത്ലറ്റ്ക്സിൽ റെയിൽവെ ഓവറോൾ കിരീടം നിലനിർത്തി ലക്ഷ്യ സെന്നിന്ട് ഡച്ച് ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസ്

ഇത് ദേശീയതയ്ക്ക് വിരുദ്ധമാണ് മഹാരാഷ്ട്ര നിയമസഭാ തെര ഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ സംസാരിക്കുകയായിരുന്നു നരേന്ദ്രമോദി ജമ്മു കശ്മീർ കേവലം ഒരു തുണ്ട് ഭൂമി മാത്രമല്ലെന്നും ഇന്ത്യയുടെ കിരീട പ്രദേശമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

ഗ്രാമീണ മേഖലയുടെ വികസന ത്തിൽ ഏറ്റവുമേറെ ശ്രദ്ധകൊടുക്കുന്ന ഗവൺമെന്റാണ് ഇപ്പോൾ ഭരണത്തി ലിരിക്കുന്നത്

മുസ്തിം സഹോദരിമാർക്ക് സ്വാഭാ വിക നീതി ലഭ്യമാക്കാനാണ് മുത്തലാഖ് നിരോധിക്കുന്ന നിയമം കൊണ്ടുവ ന്നത് എന്നാൽ അവർക്ക് ഒരിക്കലും അത് കിട്ടരുതെന്ന് ആഗ്രഹിക്കുന്നവർ പ്രതിപക്ഷത്തുണ്ട് പറ്റുമെങ്കിൽ അതും തിരികെ കൊണ്ടുവരുമെന്ന് പ്രതിപ ക്ഷത്തിന് വാഗ്ദാനം നൽകാമെന്ന് പ്രധാനമന്ത്രി പരിഹസിച്ചു

പങ്കെടുക്കാനെത്തിയ വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ വത്തിക്കാ നിൽ ഫ്രാൻസിസ് മാർപാപ്പയുമായി കൂട്ടിക്കാഴ്ച നടത്തി ഗാന്ധിജിയുടെ ഭഗവത്ഗീതാ വ്യാഖ്യാനവും തിടമ്പും നെറ്റിപ്പട്ടവുമണിഞ്ഞ ആനയുടെ രൂപവും മുരളീധരൻ മാർപാപ്പയ്ക്ക് സമ്മാനിച്ചു വിശുദ്ധ പ്രഖ്യാപന ചട ങ്ങിനു മുമ്പ് സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിലായിരുന്നു കൂടിക്കാഴ്ച വത്തി ക്കാന്റെ വിദേശകാരൃ മന്ത്രി പദവി വഹിക്കുന്ന ആർച്ച് ബിഷപ്പ് കർദ്ദിനാൾ ഗല്ലാഗറുമായും മുരളീധരൻ കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോ ദിയെ ആശംസകളറിയിക്കാൻ മാർപാപ്പ വി മുരളീധരനോട് അഭ്യർത്ഥിച്ചു മറിയം ത്രേസൃയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചതുമായി ബന്ധ പ്പെട്ട കൃതജ്ഞതാബലി ഇന്ന് വത്തിക്കാനിലെ അനസ്താസിയ ബസലിക്ക യിൽ നടക്കും സിറോ മലബാർ സഭാ മേജർ ആർച്ച് ബിഷപ്പ് കർദ്ദിനാൾ മാർ ജോർജ്ജ് ആലഞ്ചേരി കൃതജ്ഞതാ ബലിയിൽ മുഖ്യ കാർമ്മികനാ കും ഇന്ത്യയിൽ നിന്നെത്തിയ വിശ്വാസികളും രാഷ്ട്രീയ നേതാക്കളും സന്യ സ്തരും ചടങ്ങിൽ പങ്കെടുക്കും ് അങ്കമാലി എരുമേലി ശബരി റെയിൽ പദ്ധതിയിൽ നിന്ന് ഗവൺമെന്റ് പിൻമാറില്ലെന്നും ഇക്കാര്യത്തിൽ ശക്തമായ ഇടപെടലുണ്ടാ കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു

പദ്ധതി അട്ടിമറിക്കാൻ ഉദ്യോഗസ്ഥ തലത്തിൽ ആസൂ ത്രിത നീക്കം നടക്കുന്നുവെന്ന ആക്ഷേപങ്ങൾ ഗവൺമെന്റ് പരിശോധിക്കു മെന്നും പിണറായി നിവേദക സംഘത്തിന് ഉറപ്പ് നൽകി

വികസന പ്രശ്നങ്ങൾ ഭരണം ഹിന്ദുത്വം ഫാസിസം എന്നിവ യെകുറിച്ച് തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യാൻ ശ്രമിച്ചെങ്കിലും മുഖ്യമന്ത്രി ഒഴിഞ്ഞുമാറുകയാണെന്ന് മുല്ലപ്പള്ളി കാസർകോട് പറഞ്ഞു വിശ്വാസിക ളുടെ കൂടെയുണ്ടെന്ന പ്രസ്താവന സത്യമാണെങ്കിൽ ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജി പിൻവലിക്കണം

അതിനിടെ കേസിലെ പരാതിക്കാരൻ റോജോ അമേരിക്കയിൽ നിന്ന് നാട്ടിലെത്തി മരിച്ച റോയിയുടെ സഹോദരനാണ് റോജോ

കോഴിക്കോട്ട് നിന്നെത്തിയ സംഘ മാണ് വീട്ടിലെത്തി വിവരങ്ങൾ ശേഖരിച്ചത്

മരിച്ച കേസിൽ മുഖ്യ പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും

ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് പ്രസിഡന്റാകും നാടകീയ നീക്കങ്ങളിലൂടെ യാണ് മുൻ ക്രിക്കറ്റ് താരം ബ്രിജേഷ് പട്ടേൽ ലക്ഷ്യമിട്ട പ്രസിഡന്റ് സ്ഥാനം ഗാംഗുലിയിലേക്ക് എത്തിയത് ഇന്നലെ രാത്രി മുംബൈയിൽ ചേർന്ന ബി സി സി ഐ യോഗമാണ് പൊതുസമ്മതനായി ഗാംഗുലിയെ പ്രസിഡന്റാ ക്കാൻ തീരുമാനിച്ചതെന്ന് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു നിലവിൽ ബംഗാൾ ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റാണ് ഗാംഗുലി ആഭ്യന്തര മന്ത്രി അമിത്ഷായുടെ മകൻ ജയ്ഷായാണ് ബി സി സി ഐയുടെ പുതിയ സെക്രട്ടറി അരുൺ ധുമലാണ് ട്രഷറർ പ്രസിഡന്റാകുമെന്ന് പ്രതീക്ഷിച്ചി രുന്ന ബ്രിജേഷ് പട്ടേലിനെ ഐ പി എൽ ചെയർമാനായി തെരഞ്ഞെടുത്ത തായും റിപ്പോർട്ടുണ്ട് റാഞ്ചിയിൽ സമാപിച്ച ദേശീയ ഓപ്പൺ അത്ലറ്റിക്സിൽ റെയിൽവെസ് ഓവറോൾ കിരീടം നിലനിർത്തി

ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം

മെന്റിലെ മൂന്നാം മത്സരത്തിൽ കേരളം കർണാടകയെ തോൽപിച്ചു

പാലക്കാട് ശ്രീകൃഷ്ണപുരം ഗവ എഞ്ചിനീയറിംഗ് കോളേജിലെ സ്റ്റാഫ് കാർട്ടേഴ്സിനും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബ്ലോക്ക് കെട്ടിടത്തിനും മന്ത്രി എ

ബാലൻ ഇന്ന് തറക്കല്ലിടും സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തിന്റെ ജില്ലാതല സെമിനാറും പൊതുസമ്മേ ളനവും ശ്രീകൃഷ്ണപുരത്ത് മന്ത്രി ഉദ്ഘാടനം ചെയ്യും

മഹാത്മ ഗാന്ധിയുടെ ആശയങ്ങളും ആദർശങ്ങളും ഇല്ലാതാക്കാൻ രാജ്യത്ത് ശ്രമം നടക്കുന്നതായി എ ഐ

സി ജനറൽ സെക്രട്ടറി കെ

വേണുഗോപാൽ പയ്യന്നൂരിൽ പറഞ്ഞു എന്നാൽ ഗാന്ധിജിയെ ചരിത്രത്തിൽ നിന്ന് തമസ്കരിക്കാൻ ആരു വിചാരിച്ചാലും സാധ്യമല്ലെന്നും അദ്ദേഹം വൃക്തമാക്കി കണ്ണൂർ ഡി സി സി പ്രസിഡണ്ട് സതീശൻ പാച്ചേനിം നടത്തിയ ഗാന്ധി സ്മൃതി യാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

ജെ പിയെ പോലെ മഹാത്മജിയുടെ മഹത്വം കുറക്കാനാണ് സി

എമ്മും ശ്രമിക്കുന്നതെന്ന് വേണുഗോപാൽ കുറ്റപ്പെടുത്തി

ശക്തമായ മഴയിൽ കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു പുനലൂർ മുതൽ കൊട്ടാരക്കര വരെ പലയിടത്തും വെള്ളം കയറിയതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു കല്ലടയാറ്റിലും ജല നിരപ്പ് ഉയർന്നിട്ടുണ്ട്

ആദിവാസി ഭവന നിർമ്മാണ പദ്ധതിയുടെ മറവിൽ വൈത്തിരി തളിപ്പുഴ പൂക്കോടുകുന്നിൽ വലിയ തോതിൽ മണ്ണിടിച്ചു ഇതിനെതിരെ പരി സ്ഥിതി സംഘടനയായ ഗ്രീൻ ക്രോസിന്റെ നേതൃത്വത്തിൽ കലക്ടർക്കും ഡി എഫ് ഒയ്ക്കും പരാതി നൽകി

പോഷകാഹാര ബോധവൽക്കരണ സന്ദേശം ജനങ്ങളിലെത്തിക്കാനാണ് പോഷൺ എക്സ്പ്രസ്സ് വിവിധ കേന്ദ്രങ്ങളിലെത്തുന്നത്

ജലനിരപ്പ് ഉയരുകയും അണക്കെട്ട് തുറക്കുകയും ചെയ്തതോടെ ബോട്ടിംഗ് തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയാണ്

മാഹി പള്ളി തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായി ഇന്നും നാളെയും വടകര തലശ്ശേരി റൂട്ടിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി തലശ്ശേരി ഭാഗത്തുനിന്നും വരുന്ന വലിയ വാഹനങ്ങൾ ദേശീയ പാതയിൽ നിന്ന് മാഹി സെമിത്തേരി റോഡ് വഴി തിരിഞ്ഞ് റെയിൽവേ സ്റ്റേഷൻ റോഡി ലൂടെ അഴിയൂരിൽ ദേശീയപാതയിൽ പ്രവേശിക്കണം വടകര ഭാഗത്തു നിന്ന് പോകുന്ന വാഹനങ്ങൾ മാഹി ഗവൺമെന്റ് ആശുപത്രി ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ടു തിരിഞ്ഞ് പോകേണ്ടതാണ്

നാളത്തെ വൈറ്റ് കെയ്ൻ ദിനാചരണത്തോടനുബന്ധിച്ച് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് കോഴിക്കോട്ട് റാലിയും പൊതുസമ്മേള നവും നടത്തും വൈകിട്ട് മുതലക്കുളത്തുനിന്ന് തുടങ്ങുന്ന റാലി ബി ഇ എം ഗേൾസ് ഹൈസ്കൂളിൽ സമാപിക്കും

ബി എസ് എൻ എല്ലിനെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് മലപ്പു റത്ത് വൈകിട്ട് ബഹുജന മനുഷ്യചങ്ങല സംഘടിപ്പിക്കും ബി എസ് എൻ എല്ലിന്റെ സ്വകാര്യവൽക്കരണം തടയണമെന്നും ശമ്പളകുടിശ്ശിക വിതരണം ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് കരാർ തൊഴിലാളികൾ നടത്തുന്ന സമരത്തിനോട് അനുഭാവം പ്രകടിപ്പിച്ചാണ് മനുഷ്യചങ്ങല

കടലിൽ അനധികൃതമായി കണവ മീൻ പിടിച്ച ഏഴ് തമിഴ്നാട് വള്ളങ്ങൾ തൃശൂർ തീരമേഖലയിൽ ഫിഷറീസ് വകുപ്പ് പിടികൂടി മത്സ്യത്തൊഴിലാളികളുടെ പരാതിയെ തുടർന്ന് കഴിഞ്ഞ രാത്രി കടലിൽ പട്രോളിംഗ് നടത്തിയ ഫിഷറീസ് അധികൃതരാണ് വള്ളങ്ങൾ പിടികൂടിയത്